സുവർണകനൃക സ്ത്രീശാക്തീകരണ പരിപാടി വൈകീട്ട് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യും പോളിടെക്നിക് കോളജ് അധ്യാപകക്ഷാമം പരിഹരിക്കാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഡോ കെ ടി ജലീൽ എരുമേലി പേട്ടതുളളൽ ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്തു നിന്ന് പ്പുറപ്പെടും ബിജെപി ദേശീയകൌൺസിൽ യോഗം ഉച്ചകഴിഞ്ഞ് ഡൽഹി യിൽ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും ഹജ്ജ് തീർത്ഥാടകരെ കണ്ടെത്താൻ കരിപ്പൂരിൽ നാളെ നറു ക്കെടുപ്പ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പര നാളെ സിഡ്നിയിൽ തുടങ്ങും

വിട്ടയച്ചവരുടെ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു നിയമപരമായല്ല ഇവരെ വിട്ടയച്ചതെങ്കിൽ ശേഷിച്ചകാലം കൂടി ഇവർ തടവ് അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി ആറ് മാസത്തിനകം പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ബേട്ടി ബചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നടപ്പാക്കുന്ന സുവർണ്ണ കന്യക സ്ത്രീ ശാക്തീ കരണ പരിപാടി ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വൈകീട്ട് മലപ്പുറം ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ വിവാഹം പോഷക കുറവ് എന്നീ സാഹചരൃങ്ങൾ പരിഗണിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലക ളിൽ മികവ് തെളിയിച്ച യാസ്മിൻ അരിമ്പ്ര മീനാക്ഷി ഗുരുക്കൾ എന്നിവരെ ഗവർണർ ആദരിക്കും കേരളത്തിലെ പോളി ടെക്നിക് കോളജുകളിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുന്നതിന് പുതിയ തസ്തിക്കൾ സൃഷ്ടിക്കു മെന്ന് മന്ത്രി ഡോ കെ ടി ജലീൽ അറിയ്യിച്ചു ഇതിന് ഗവ

ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ ്കേരളത്തിൽ പഠനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ഗവ പോളിടെക്നിക് കോളജിൽ നിർമ്മിച്ച പ്രവേശന കവാടവും പുതുതായി നിർമിച്ച ഡ്രോയിംഗ് ഹാൾ ബ്ലോക്കും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പളളി അധ്യ ക്ഷനായിരുന്നു ശബരിമല് തീർത്ഥാടനത്തിന്റെ ഭാഗമായ എരുമേലി പേട്ടതു ള്ളൽ ഇന്ന് ്നട്ടക്കും എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയോടെ തുട ങ്ങും സ്മൂഹപെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻനായർ നേതൃത്വം നൽകുന്ന സംഘത്തിന് വാവര്പള്ളിയിൽ സ്വീകരണം നൽകും വാവര് സ്വാമിയുടെ പ്രതിനിധിയേയും കൂട്ടി അമ്പല പ്പുഴ സംഘം എരുമേലി ധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശബരിമലയ്ക്ക് തിരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ യോഗംപെരിയോൻ അമ്പാ ടത്ത് വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ആലങ്ങാട് സംഘത്തിന്റെ പേട്ട തുള്ളലും ആരംഭിക്കും ശബരിമലയിലേക്ക് നാളെ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക പന്തളം കൊട്ടാരം ദേവസ്വം ബോർഡിന് നൽകുമെന്നും കീഴ്വഴക്കം അനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയതെന്നും രാജപ്രതിനിധി ശ്രീകുമാരവർമ്മ പത്തനംതി ട്ടയിൽ അറിയിച്ചു പേടകത്തിനും പല്ലക്കിനും ഒപ്പം പോകുന്നവരുടെ പട്ടിക തയ്യാ റാക്കി കഴിഞ്ഞു

അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ടവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് വിലക്കി പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവി ദേവ്സ്വം ബോർഡിന് നിർദേശം നൽകിയിരുന്നു തിരുവാഭരണ്ടത്തിന് പ്രത്യേക സുരക്ഷ വേണമെന്ന ഹൈക്കോടതി നിർദേശത്തിന്റെ പശ്ചാത്തലത്തിലായി രുന്നു നടപടി ബിജെപി ദേശീയ കൌൺസിൽ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഡൽഹിയിൽ തുടങ്ങും പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ ഉദ്ഘാ ടനം ചെയ്യുന്ന രണ്ട് ദിവസ്ത്തെ കൌൺസിൽ യോഗത്തിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംബന്ധിക്കും പന്ത്രണ്ടായിര ത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് യുവമോർച്ച നേതാവ് പൂനം മഹാജൻ ഡ്രൽഹിയിൽ അറിയിച്ചു ഗവൺമെൻ് കൊണ്ടു വന്ന സംവരണ ഭേദ ഗ തി ബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശബരിമലയിലെ യുവതീ പ്രവേശനം കേരളത്തിലെ ക്രമസമാധാന സാഹചര്യം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്ന തിന്റെ നറുക്കെടുപ്പ് നാളെ മന്ത്രി ഡോ കെ ടി ജലീൽ കരിപ്പൂരിൽ നിർവ്വഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിലാണ് നറുക്കെടുപ്പ്

കൊല്ലം ആലപ്പാട്ട് കരിമണൽ ഖനനത്തിന്റെ പേരിൽ പൊതു മേഖലക്കെതിരായ നീക്കം അനുവദിക്കില്ലെന്ന് മന്ത്രി ജെ മേഴ്സി കുട്ടിഅമ്മ പറഞ്ഞു തീരം സംരക്ഷിച്ച് ഖനനം എന്നാണ് ഗവ

സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകി ല്ലെന്നും മന്ത്രി സ്വകാര്യചാനലിനോട് പറഞ്ഞു ട്രാൻസ്ജെൻഡർ വൃക്തികൾക്ക് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും പങ്കാളിത്തം ഉറപ്പുവരുത്താനുതകും വിധത്തിൽ പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാ ണെന്ന് മന്ത്രി കെ കൈ ശൈലജ വ്യക്തമാക്കി രാജ്യത്ത് ആദ്യ മായി ട്രാൻസ് ജെൻഡർ വൃക്തികളെ സംബ്രസിക്കുന്ന നയം നട പ്പാക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും അവർ പറഞ്ഞു ഈ വിഭാഗം വൃക്തികൾക്കായി സാമൂഹൃനീതി വകുപ്പ് ആവി ഷ്കരിച്ച വിവിധ ക്ഷേമപദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ മുരളീ ധരൻ എം എൽഎ അധ്യക്ഷനായിരുന്നു നഷ്ടപ്പെട്ട ജനുപിന്തുണ നേടിയെടുക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു തിരുവനന്തപു രത്ത് കെ പി സി സി നേതൃയോഗത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം പ്രപർത്തനത്തിൽ സമൂലമായ മാറ്റം വേണമെന്നും ലോക്സഭ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ അടുത്തമാസം അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്നും ആന്റണി പറഞ്ഞു കോൺഗ്രസ് മാത്രം വിചാരിച്ചാലോ കോൺഗ്രസിനെ ഒഴി വാക്കി മറ്റുളളവർക്കോ നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ കഴി യില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഭരണഘടന സംബന്ധിച്ചു അടിസ്ഥാന അറിവും മൂല്യവും പ്രത്യേകിച്ച് യുവജനങ്ങളിലെത്തിക്കുകയാണ് ഭരണഘടനാസാ ക്ഷരതാസന്ദേശയാത്രയുടെ ലക്ഷ്യമെന്ന് സ്പീക്കർ വൃക്തമാക്കി ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും സിഡ്നിയിലാണ് ആദ്യമത്സരം പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളുണ്ട് അബുദാബിയിൽ ഏഷ്യൻകപ്പ് ഫുട്ബോളിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ

രാത്രി ഒമ്പതരയ്ക്ക് കിർഗിസ്താൻ ദക്ഷിണകൊറിയയുമായി ഏറ്റുമുട്ടും ഏഴാമത് നാഷണൽ മിനിക്കോയ് ഫെസ്റ്റ് നാളെ മിനിക്കോയ് ദ്വീപിൽ ആരംഭിക്കും പരിപാടിയുടെ ഭാഗമായി ദ്വീപിന്റെ പര മ്പരാഗത ജലമേളയിൽ പ്രധാനമ്പ്രന്തിയുടെ പ്രൈസ്മണി ജഹാ തോണി വളളംകളി മത്സരങ്ങൾ ഭക്ഷ്യമേള കലാകായികമത്സര ങ്ങൾ എന്നിവയും നടക്കും

അഗസ്ത്യൻമൂഴിയിലെ ജില്ലാപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മന്ത്രി എ കെ ശ്ശീന്ദ്രൻ വൈകീട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്തിന്റെയും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തി ന്റെയും നേതൃത്വത്തിൽ കൊടുവളളി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുക്കം കൊടുവളളി നഗരസഭകളുടെയും സഹകരണത്തോടെയാണ് അതിജീവനത്തിന് ഒരു കൈത്താങ്ങ് എന്ന സന്ദേശത്തോടെ മഹോത്സവം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് വടകരയിൽ തുടക്കമായി

ഞായറാഴ്ച സമാപിക്കും സ്ത്രീക്ക് നീതി കിട്ടുംവിധത്തിൽ പരാതികൾ പുരുഷന്മാർക്കും വനിതാകമ്മീഷനിൽ സമർപ്പിക്കാമെന്ന് സംസ്ഥാന വനിതാകമ്മീഷൻ വ്യക്തമാക്കി സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിന് നിയമത്തിന്റെ നൂലാമാലകൾ തടസ്സമാകില്ലെന്നുറപ്പാക്കിയാണ് കേസുകൾ പരിഗ ണിക്കുന്നതെന്നും കമ്മീഷൻ അംഗങ്ങൾ കൊല്പത്ത് പറഞ്ഞു ഇതര നിയമസംവിധാനങ്ങൾ വഴി പരിഹരിക്കാനാകാത്ത പരാ തികളടക്കം അദാലത്തുകളിൽ തീർപ്പാക്കി വരികയാണെന്നും കമ്മീ ഷൻ കൊല്ലത്ത് വ്യക്തമാക്കി രൂപതകളിൽ പരാതി പരിഹാര സമിതി രൂപീക്രിക്കാൻ കൊച്ചി യിൽ ചേർന്ന സീറോ മലബാർ സഭ സിനഡ് ത്രീരുമാനിച്ചു പുരോ ഹിതർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഉയരുന്ന പരാതികൾ പരിഹരി ക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന്തെന്ന് യോഗം വ്യക്തമാ ക്കി സഭാ വിശ്വാസികളുടെ സുര്ക്ഷയൂം സംരക്ഷണവും ഉറപ്പാ ക്കുന്നത് വത്തിക്കാന്റെയും കത്തോലിക്ക ബിഷപ്പ് കൌൺസിലി ന്റെയും നിർദേശപ്രകാരമാണെന്നുംസീറോ മലബാർസഭ വക്താവ് അറിയിച്ചു ഇന്ധനവിലയിൽ വീണ്ടും വർധന

കണ്ണൂ രിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുകയായിരുന്ന ബസ്സും മംഗ ലാപുരത്തേക്ക് പോകുകയായിരുന്ന ട്രെയിലറും രാവിലെ ചാല ക്കുന്ന് വളവിലാണ് അപകടത്തിൽ പെട്ടത് പരിക്കേറ്റവരെ കണ്ണൂ രിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു

സംസ്ഥാന എയിഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമു ഖൃത്തിൽ നാളെ ദേശീയ യുവജനദിനം ആചരിക്കും സംസ്ഥാന തല ഉദ്ഘാടനം കോഴിക്കോട്ട് രാവിലെ കളക്ടർ സാംബശിവറാവു നിർവഹിക്കും യുവാക്കൾക്കിടയിൽ വർധിച്ചുവരുന്ന ലഹരി ഉപ യോഗത്തിനും ജീവിതശൈലീ രോഗങ്ങൾക്കും എതിരെ ബോധ വൽക്കരണമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത് കേരള ലളിതകലാ അക്കാദമിയുടെ ദേശീയ വെങ്കല ശിൽപ ശാല കണ്ണൂരിൽ ഇന്ന് സമാപിക്കും

മഞ്ചേരി പയ്യനാട് ചോലക്കലിൽ ആർഎസ്എസ് പ്രവർത്തകനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് പ്രതികളെ മുഞ്ചേരി പൊലീസ് അറസ്റ്റ് ചെയ്തു നാലു പേർ ഒളിവിലാണ് പ്രതികൾ എസ്ഡിപിഐ പ്രവർത്തകരാണെന്ന് പൊലീസ് പറഞ്ഞു പ്യ്യനാട് ചോലക്കൽ അർജുനനെയാണ് അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്

ജില്ലയിൽ നടപ്പാക്കിവരുന്ന വിവിധ ദേശീയ സംസ്ഥാന ആരോഗൃപദ്ധതിക ളുടെ പ്രവ്ർത്തനും കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി കോഴിക്കോട് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പറമ്പിൽ ബസാറിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി പത്തോളം പേരെ തെരു വുനായ കടിച്ചുപരിക്കേൽപിച്ചു തലക്ക് കടിയേറ്റ നിലയിൽ വീട്ടമ്മ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ജമ്മു കശ്മീരിൽ പാക്ക് വെടിവെയ്പിൽ കരസേന മേജർക്കും ബിഎസ്എഫ് ജവാനും പരിക്ക് തുടർച്ചയായ മൂന്നാം ദിവസമാണ് അതിർത്തിയിൽ പാക്കിസ്ഥാൻ ഇന്ത്യക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതെന്ന് സൈനിക വക്താവ് ശ്രീനഗറിൽ അറി യിച്ചു